സംസ്ഥാനത്ത് ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം മുടക്കമില്ലാതെ നടത്തുമെന്ന് വ്യാപാര സംഘടനകൾ ഉറപ്പ് നൽകി

കേരളം തമിഴ്നാട് കർണ്ണാടക ആന്ധ്രപ്രദേശ് എന്നിവ പൂർണ്ണമായി അടച്ച സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നു മറ്റ് ചില സ്റ്റംസ്ഥാനങ്ങ ളിൽ ലോക്ക്ഡൌൺ ഏതാനും ജില്ലകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്

ലോക്ക്ഡൌണിന്റെ ഭാഗമായി സംസ്ഥാന അതിർത്തികൾ അടക്കും

ഓട്ടോയും ടാക്സികളും നിയന്ത്ര ണങ്ങൾക്ക് വിധേയമായി സർവ്വീസ് നടത്തും സ്ഥകാര്യ വാഹനങ്ങൾക്ക് തടസ്സമില്ല അവശ്യ സാധ ന ങ്ങൾ വിൽക്കുന്ന കട കൾക്ക് രാവിലെ ഏഴുമുതൽ വൈകിട്ട് അഞ്ചുവരെ പ്രവർത്തി ക്കാം

മെഡിക്കൽ ഷോപ്പുകൾക്ക് സമയ നിയന്ത്രണം ബാധക മല്ല ബാങ്കുകൾ ഉച്ചയ്ക്ക് രണ്ടുവരെ പ്രവർത്തിക്കുന്ന തര ത്തിൽ ക്രമീകരിക്കും

ജി വിതരണത്തിനും പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനത്തിനും തടസ്സമില്ല ഗവൺമെന്റ് ഓഫീസുകൾ ആവശ്യമായ സുരക്ഷാ ക്രമീ കരണങ്ങളോടെ പ്രവർത്തിക്കും ആരാധനാലയങ്ങളിൽ ആളുകൾ കൂടുതലായി എത്തുന്ന എല്ലാ ചടങ്ങുകളും നിർത്തും റസ്റ്റോറന്റുക ളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കില്ല

വെള്ളം വൈദ്യു തി ടെലിഫോൺ അവശ്യ ഭക്ഷണസാധനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ ജനങ്ങൾക്ക് ലഭിക്കും

ഇതിനായി ഗവൺമെന്റ് ഒപ്പമല്ല മുന്നിൽ തന്നെ ഉണ്ടാ കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി

സി വഴി അടിയന്തരമായി നിയമിക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു

സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുത്തവർക്ക് അഡൈസ് മെമ്മോ നൽകി ക്കഴിഞ്ഞതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു വീഡിയോ കോൺഫറൻസിലൂടെ കൌൺസിലിംഗ് നടത്തി ഒറ്റദിവസം കൊണ്ടായിരിക്കും ഇവരുടെ നിയമ നം പാരാമെഡിക്കൽ ജീവനക്കാരെയും അടിയന്തരമായി നിയമിക്കുമെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാ റെടുപ്പുകൾ എടുത്തുവരികയാണ് വീടുകളിൽ നിരീക്ഷ ണത്തിൽ കഴിയുന്നവർക്ക് രോഗലക്ഷണങ്ങളോ അസു ഖങ്ങളോ ഉണ്ടായാൽ ഐസൊലേഷൻ മുറികളിൽ മാത്രമേ ചികിത്സിക്കാനാകൂ

കോവിഡ് വ്യാപകമാകുന്ന സാഹ ചര്യ ത്തിൽ സാമൂഹ്യ ഇടപെടൽ കുറയ്ക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ലോക്ക് ഡൌൺ നടപടിയോട് എല്ലാവരും സഹകരിക്കണമെന്ന് മ്യന്തി ജെ

സംസ്ഥാനത്ത് ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം മുട ക്കമില്ലാതെ നടത്താൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും വ്യാപാര സംഘടനാ പ്രതിനിധികൾ പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകി

ജനങ്ങൾക്ക് കടയിലെത്തി സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ വീടുകളിൽ സാധനങ്ങൾ എത്തിച്ചുകൊടുക്കാൻ വ്യാപാരികൾ സ്ന്നദ്ധരാകണം ഓരോ പ്രദേശത്തും കച്ചവടക്കാർകൂടി ഉൾക്കൊള്ളുന്ന പ്രാദേശിക പൊതുസംവിധാനം ഒരുക്കണമെന്ന് മുഖ്യ മന്ത്രി നിർദ്ദേശിച്ചു

ഇവരെല്ലാം ഞായറാഴ്ച എമി റേറ്റ്സ് വിമാനത്തിൽ ദുബായിൽനിന്ന് കൊച്ചി വിമാന ത്താവളത്തിൽ എത്തിയവരാണ് ഇവരിൽ നാലുപേർ പാനൂർ സ്വദേശികളും ഒരാൾ കൂത്തുപറമ്പ് സ്വദേശി യുമാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ഇതിന് പുറമെ കാസർകോട്ട് രോഗം സ്ഥിരീകരിച്ചയാളും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്

മൂന്നാർ യാത്ര കഴിഞ്ഞെത്തി കോവിഡ് സ്ഥിരീകരിച്ചുയു

ഇവർ ജനറൽ ആശുപത്രി യിൽ ചികിത്സയിലാണ്

ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം പത്തായി ഉയർന്നു

കൊച്ചി വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിലെ ത്തിയ യാത്രക്കാരിൽ അഞ്ചുപേരെ തുടർ പരിശോധനയ്ക്ക് റഫർ ചെയ്തു ബാക്കിയുള്ളവരിൽനിന്ന് സത്യവാങ്മൂലം വാങ്ങി വീടുകളിൽ നിരീക്ഷണത്തിലാക്കി

കഥാകൃത്ത് ഇ ഹരികുമാർ തൃശൂരിൽ അന്തരിച്ചു

കേരള സാഹിത്യ അക്കാദമി പുരസ്കാ രവും നാലപ്പാടൻ പത്മരാജൻ അവ്വാർഡുകളും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേട്ടിയിട്ടുണ്ട് ഉറ ങ്ങുന്ന സർപ്പങ്ങൾ ഒരു കുടുംബപുർാണം എന്നീ നോവ ലുകളും ഒട്ടേറെ ചെറുകഥാ സ്മാഹാരങ്ങളും ലേഖന ങ്ങളും തിരക്കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രമുഖ ചിത്രകാരൻ കെ പ്രഭാകരൻ നിര്യാതനായി

ഇന്നലെ രാത്രി എട്ടുമണിയോടെ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു അദ്ദേ ഹത്തിന്റെ അന്ത്യം രാജ്യത്തിനകത്തും പുറത്തും നിര വധി പ്രദർശനങ്ങൾ നടത്തിയ അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സീനിയർ ഫെലോഷിപ്പും കേരള ലളിത കലാ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്